വർദ്ധിച്ചുവരികയാണെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം

പുതുക്കാനാവുമെന്ന് ക്ട്രേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ

ലക്ഷം കടന്നു

പ്പാസ്മ തെറാപ്പി സംബന്ധിച്ച് പരീക്ഷണങ്ങൾ രാജ്യത്ത് നടന്നുവരികയാണെന്നും ഇത് കൊറോണയ്ക്കായുള്ള ചികിത്സയായി ഉപയോഗിക്കാമെന്നതിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സി എം ആർ പഠനം പൂർത്തിയാക്കി ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമാക്കുന്നതുവരെ പ്താസ്മ തെറാപ്പി ഗവ്രേഷണത്തിനോ പരീക്ഷണ ആവശ്യത്തിനോ മാത്രമേ ഉപയോഗിക്ക്റ്റുപ്പു എന്നും അദ്ദേഹം വ്യക്തമാക്കി

ബയോ ടെക്നോളജി വകുപ്പിന് കീഴിൽ പൊതുഭരണ സ്ത്ര്യ്ഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

അടുത്ത മാസത്തോടെ കോവിഡ് പരിശോധനയ്ക്കുള്ള ആർ

ആർ കിറ്റുകളും ആന്റിബോഡി ടെസ്റ്റ് കിറ്റുകളും ഇന്ത്യയ്ക്ക് പ്രാദേശികമായി നിർമിക്കാൻ കഴിയുമെന്ന് ശ്രീ

കാനഡയിലുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കനേഡിയൻ ഭരണകൂടം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കൊറോണ വൈറസ് ബാധ തടയുന്നതിന് ഇരുരാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ദുരന്തത്തെ തുടർന്നുണ്ടായ ആരോഗ്യ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ഇന്തോനേഷ്യയിലേയ്ക്ക് അവശ്യ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിയതിന് പ്രസിഡന്റ് നന്ദി അറിയിച്ചു

പൊതുജനങ്ങൾക്ക് ബാങ്കിങ്ങ് കറസ്പോണ്ടന്റുകളായ പൊതുസേവന കേന്ദ്രങ്ങൾ വഴി ആധാർ വിവരങ്ങൾ പുതുക്കാനാവും

ഗ്രാമീണ മേഖലയിലെ പൊതുസേവന കേന്ദ്രങ്ങൾ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് ശ്രീ

രമേഷ് പൊക്രിയാൽ വ്യക്തമാക്കി

കടുവാ സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിൽ രോഗം പകർന്നുപിടിക്കുന്ന സാഹചര്യത്തിലാണ് പഴുതടച്ച ് പരിശോധന ശക്തമാക്കിയത് തേക്കടി റേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ രാത്രിയും പകലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തി മേഖലയിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ടി കമ്പനികളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അടിസ്ഥാനത്തിൽ ജോലിചെയ്യാനുള്ള വി

ഇന്നലെ സംസ്ഥാന ഐ ടി മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ജീവനക്കാർ കമ്പനികളിൽ നേരിട്ട് ഹരാജരാകണമോ വർക്ക് ഫ്രം ഹോം അടിസ്ഥാനത്തിൽ ജോലി ചെയ്യണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അധികാരം കമ്പനികൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ബ്രിക്സ് ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ വീഡിയോ കോൺഫ്റ്റൻസിങ്ങിലാണ് ശ്രീ

ആരോഗ്യത്തെ മാത്രമല്ല ലോ്കുത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും സാരമായി ബാധിച്ചുകൊണ്ടീരിക്കുകയാണ്

നാല് പേരാണ് ഇന്നലെ രോഗമുക്തരായത്

കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് പിവിധ തലങ്ങളിൽ സംസ്ഥാനത്തിനുണ്ടായ തിരിച്ചടികളെ മറികടക്കുന്നതിന് പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽനിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സൂക്ഷ്മമായ ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ജനങ്ങൾ സമ്പർക്ക വിലക്കിനോട് പൂർണമായി സഹകരിക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസ്

അതിർത്തി കടന്നു വരുന്നവരെ പ്നിർട്ടിക്ഷിക്കാൻ വാളയാറിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്

ജീവനക്കാരുടെ ശമ്പളം മാറ്റി വെയ്ക്കുന്നത് അത് നിരസ്സിക്കുന്നതിന് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി പ്രത്യേക ഉത്തരവിലൂടെ ശമ്പളം പിടിച്ചു വെയ്ക്കാനാവില്ലെന്ന് പറഞ്ഞു

ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പ്രവൃത്തികൾ ഒന്നര മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ മന്ത്രി വി

സുനിൽകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ഇതരസംസ്ഥാനങ്ങളിൽ ചിക്ടിത്സ പഠനം പരീക്ഷ ഇന്റർവ്യൂ തീർത്ഥാടനം വിനോദയാത്രം എന്നിവയ്ക്കായി പോയവർ ്അടച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് മലയാളി വിദ്യാർത്ഥികൾ തൊഴിൽ നഷ്ടപ്പെട്ടവർ വിരമിച്ചവർ കൃഷിപ്പണിക്കായി മറ്റു സംസ്ഥാനങ്ങളിൽ പോയവർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകും

ഇവരെല്ലാവരും നിർബന്ധമായും നിരീക്ഷണത്തിലാക്കും

ജി സി